ഇന്ത്യൻസ് പോരാട്ടം ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തി

വിർചലായി നടന്ന യോഗം അതിർത്തിപ്രദേശങ്ങളിലേയും നിയന്ത്രണരേഖയിലേയും സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു

തെറ്റിദ്ധാരണകൾ ഒഴിവാക്കി പ്രദേശത്ത് സ്ഥിരതയും സമാധാനവും നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത ഇരുർജ്ജ്യങ്ങളിലേയും വിദേശമന്ത്രിമാർ ചർച്ച ചെയ്തു ഈ മുൻൻ ്നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടനാ സമ്മേളനത്ത്രോട്ടെനുബന്ധിച്ച് ഇരുരാജ്യങ്ങളിലേയും വിദേശകാർ ്യൂമന്ത്രിമാർ മോസ്കോയിൽ നടത്തിയ ചർച്ചകൾക്കിടെയാണ് അ്ഞ്ചിന കരാർ മുന്നോട്ട് വച്ചത്

കണ്ടെയിൻമെന്റ് മേഖലയ്ക്ക് പുറത്ത് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താൻ ഇതിന്റെ ഭാഗമായി ആഭ്യന്തര വകുപ്പ് അനുമതി നൽകി

കേന്ദ്രസർക്കാരുമായി ആലോചിക്കാതെ കണ്ടെയിൻമെന്റ് മേഖലയ്ക്ക് പുറത്ത് പ്രാദേശികമായി ലോക്ഡൌൺ പ്രഖ്യാപിക്കരുതെന്ന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശമുണ്ട് സംസ്ഥാനങ്ങൾക്കുള്ളിലും സംസ്ഥാനങ്ങൾക്ക് പുറത്തും ജനങ്ങൾക്ക് സഞ്ചരിക്കാനും ചരക്ക് നീക്കത്തിനും അനുവാദമുണ്ടാകും

സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രദർശനങ്ങൾ നടത്താം

ചടങ്ങുകളിൽ നൂറിലധികം പേർ പങ്കെടുക്കണമോ എന്നത് സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനിക്കാം അധികൃതർ അനുവദിച്ചാൽ സർവകലാശാലകളിലെയും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സുകളിൽ എത്തി പഠനം നടത്താം

സാമൂഹ്യ അകലം പാലിക്കൽ പോലുള്ള രീതികൾ തുടരണമെന്നും നിർദ്ദേശമുണ്ട്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വീജ്ഞാപനം നിലവിൽ വരുന്ന മുറയ്ക്ക് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാം

നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം എട്ട് ആണ്

എങ്കിലും ഹോട്ടലുകൾ റസ്റ്റോറന്റുകൾ ബാറുകൾ എന്നിവ ഈ മാസം അഞ്ച് മുതൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കാം സംസ്ഥാനത്തിനകത്തുള്ള ട്രെയിൻ സർവീസുകൾ ആരോഗ്യ പെരുമാറ്റച്ചട്ടം പാലിച്ച് ഉടൻ പുനഃരാരംഭിക്കും അഞ്ചാം ഘട്ട ലോക്ഡൌൺ ഇളവുകളുടെ ഭാഗമായി വിനോദസഞ്ചാര മേഖലയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രത്യേക മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കും

പരീക്ഷണ വിക്ഷേപണത്തിലൂടെ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ മറ്റൊരു നാഴികക്കല്ലു പിന്നിട്ടതായി പ്രധാനമന്ത്രി പറഞ്ഞു ഈ രംഗത്ത് മെച്ചപ്പെട്ട പ്രവർത്തന ശേഷിയും തദ്ദേശീയ സാങ്കേതിക തികവും രാജ്യം കൈവരിച്ചതായും ശ്രീ

ഇന്ത്യയ്ക്കെതിരെ അധിക്ഷേപകരവും അസ്വീകാര്യവുമായ ഭാഷ അവലംബിക്കുന്നതുകൊണ്ട് പാകിസ്ഥാന്റെ മനുഷ്യാവകാശ ലംഘനങ്ങൾ അവർക്ക് മറച്ചുവയ്ക്കാനാവില്ലെന്ന് ഐക്യരാഷ്ട്രസമിതിയിലെ ഇന്ത്യയുടെ ഫസ്റ്റ് സെക്രട്ടറി പവൻ ബാദ്ദെ പറഞ്ഞു പാകിസ്ഥാനും അതിന്റെ അധീനതയിലുള്ള പ്രദേശങ്ങളും മനുഷ്യാവകാശ പ്രവർത്തകർക്കും സമൂഹിക പ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകർക്കും മത ന്യൂനപക്ഷങ്ങൾക്കും മരണക്കെണികളാണെന്നും ഇന്ത്യയ്ക്കെതിരായി കെട്ടിച്ചമച്ച ആരോപണങ്ങളൊന്നും ഈ വസ്തുതയെ മാറ്റാൻ പോകുന്നില്ലെന്നും ശ്രീ പവൻ ബാദ്ദെ പറഞ്ഞു

കോവിഡ് മഹാമാരി മൂലം നികുതിദായകർക്കുണ്ടായ ബുദ്ധിമുട്ട് കണക്കിലെടുത്താണ് തീയതി നീട്ടിയതെന്ന് ആദായനികുതി വകുപ്പ് അറിയിച്ചു

എറണാകുളത്ത് രോഗബാധിതരുടെ എണ്ണം ആയിരം കടന്നതും ആദ്യമായാണ്

ഒരു റിപ്പോർട്ട്

രാജ്യാന്തര തലത്തിലുള്ള ചരക്ക് വിമാനങ്ങൾക്കും സർക്കാർ അനുമതിയുള്ള യാത്രാ വിമാനങ്ങൾക്കും വിലക്കുണ്ടാകില്ല കോവിഡ് പശ്ചാത്തലത്തിൽ കൂടുതൽ ഇളവുകൾ നൽകുന്ന അൺലോക്ക് അഞ്ച് ഇന്ന് നിലവിൽ വരുന്ന സാഹചരൃത്തിലാണ് ഇക്കാരൃം അറിയിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടായത് അതേസമയം നിയന്ത്രണങ്ങളോടെ വിമാനയാത്ര ക്രമേണ അനുവദിക്കുന്നതിന് നിരവധി രാജ്യങ്ങളുമായി കരാർ ഒപ്പുവച്ചിട്ടുണ്ട് ഇതുപ്രകാരം ഇന്നലെ ഭൂട്ടാൻ കെനിയ എന്നീ രാജ്യങ്ങളുമായും കരാർ ഒപ്പുവച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഒൻപത് ലക്ഷത്തിലധികം പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്

ഇതുവരെ മൂന്ന് ്കോടിയിലധികം പേർക്ക് കോവിഡ് ബാധിച്ചപ്പോൾ രണ്ടര ക്ടോടിയിലേറെ പേർ രോഗമുക്തി നേടി

രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ കരനിർമ്മിത തടി പാവകളുടെ വിപണനകേന്ദ്രമായ മഹാരാഷ്ട്രയിലെ സാവന്ത്വാടിയെ ആഗോളതലത്തിൽ ഉയർത്തുകയെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തിൽനിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് കളിപ്പാട്ടങ്ങളുടെ ചിത്രങ്ങളടങ്ങിയ പോസ്റ്റ്കാർഡ് പുറത്തിറക്കുന്നത്

കോവിഡ് മഹാമാരിയുടെ സമയത്ത് ആരെയും ഭവനരഹിതരാക്കാൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയാണ് കോടതി അനുമതി നിഷേധിച്ചത്

അമേരിക്ക് ്യൂറോപ്യൻ രാജ്യങ്ങൾ തുടങ്ങിയ വികസിത രാജ്യങ്ങൾ പ്രതീസന്ധി മറികടക്കാൻ പദ്ധതികൾ ആവിഷ്ക്കരിച്ചിട്ടുണ്ട്

എൽ ക്രിക്കറ്റിൽ ഇന്ന് കിംഗ്സ് ഇലവൻ പഞ്ചാബ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം